ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായ നിക്ഷേപക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അല്പസമയത്തിനകം മുംബൈയിൽ ആരംഭിക്കും

ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായ നിക്ഷേപക കേന്ദ്രമായി തുടരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വിശദാംശങ്ങളുമായി ഗോപകുമാർ

ഇന്ത്യൻ ബഹിരാകാശ സംരംഭുങ്ങളായ ചാന്ദ്രയാനും ചൊവ്വ ദൌത്യമായ മംഗൾയാനും കുറഞ്ഞു ബ്ലവിൽ നടപ്പാക്കാനായത് പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു

ജൻധൻ യോജന ആധാർകാർഡ് മൊബൈൽ സാങ്കേതികയം റുപേ കാർഡ് ഭീം ആപ്പ് എന്നിവ ഇതിൽ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ രംഗങ്ങളിൽ ലോക തലസ്ഥാനമായി മാറുകയാണ് ഇന്ത്യയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയുടെ വാർഷിക ചടങ്ങിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേയോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും സമ്മേളനത്തെ തുടർന്ന് ഇരു നേതാക്കളും വിവിധ വിഷയങ്ങളിൽ പരസ്പര ധാരണയിൽ എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തൽ

കൂടാതെ ഇന്നു തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് വിദേശകാര്യമന്ത്രി താരോ കോനേയുമായും മറ്റ് ഉന്നത നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും

ശ്രീമതി സുഷമസ്വരാജ് ഇന്ന് ദോഹയിൽട്ട് ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽട്ട്ടാനി്യുമായും ഉപപ്രധാനമന്ത്രിയും വിദേശകാരൃ മന്ത്രിയുമായി മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ ബിൻ ജാസിം അൽ താനിയ്ക്മാ്യും കൂടിക്കാഴ്ച നടത്തും ഖത്തർ ഷേയ്ഖുമായും സുഷമ സ്വരാജ് ചർച്ച നടത്തും കൂടാതെ ദോഹയിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീമതി സുഷമസ്വരാജ് ആശയ വിനിമയം നടത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പരസ്പരബന്ധത്തെ നേതാക്കൾ വിലയിരുത്തും

സന്ദർശനത്തിന്റെ രണ്ടാംപാദത്തിൽ കുവൈറ്റിൽ എത്തുന്ന ശ്രീമതി സുഷമ കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയുമായും കുവൈറ്റ് ഷെയ്ഖുമായും ചർച്ച നടത്തും

ചീഫ് ജ്സ്ലിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ചാണ് ക്ട്രേസ് പരിഗണിക്കുന്നത്

ഇതിൽ അഞ്ചുപേർ സിറ്റിംഗ് എം എൽ എ മാരാണ്

ഛത്തീസ്ഗഡിൽ അടുത്തമാസം രണ്ട് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക

മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ മറ്റ് പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു

അഴിമതി ഇല്ലാതാക്കുക പുതിയൊരു ഇന്ത്യ പടുത്തുയർത്തുക എന്ന സന്ദേശം ഉയർത്തിയാണ് നവംബർ മൂന്നുവരെ അഴിമതി വിരുദ്ധ വാരാചരണം നടത്തുന്നത് വിവിധ മന്ത്രാലയങ്ങൾ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർ അഴിമതിക്കെതിരെ പ്രതിജ്ഞ ചെയ്യുന്നതോടെയാണ് വാരത്തിന് തുടക്കമാവുക

ദുരന്ത പ്രദേശമായ പങ്കാൽ പിനാങ് വിമാനത്താവളത്തിന് സമീപം നിരവധി പേർ ആകാംക്ഷയോടെ കൂടി നിൽക്കുന്നതിന്റെ ചിത്രവും ഇൻഡോനേഷ്യൻ ടി വി പുറത്തുവിട്ടു ഇൻഡോനേഷ്യയിൽ അടുത്തകാലത്ത് സർവ്വീസ് ആരംഭിച്ച വിമാന കമ്പനിയാണ് ലയൺ എയർവേസ്

അടുത്തവർഷം ജനുവരി ഒന്നിന് ബോൾസോനാരോ പ്രസിഡന്റായി അധികാരമേൽക്കും

ക്ഷേത്രത്തിന്റെ പവിത്രത കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതിനിടെ ശബരിമലയിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കരുതെന്ന ശ്രീ ടി

മോഹൻദാസിന്റെ ഹർജി കോടതി തള്ളി

എം കോളേജ് പാലക്കാട് പി

ദാസ് മെഡിക്കൽ കോളേജ് വർക്കല എസ്

കോളേജ് എന്നിവിടങ്ങളിൽ ഈ അധ്യയന വർഷം നടത്തിയ പ്രവേശനമാണ് റദ്ദാക്കിയത് ഈ കോളേജുകളിൽ അടിസ്ഥാന സൌകര്യമില്ലെന്ന മെഡിക്കൽ കൌൺസിലിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് നടപടി

ഇത് ചോദ്യം ചെയ്താണ് മെഡിക്കൽ കൌൺസിൽ ഹർജി നൽകിയത്

വിവിധ തരത്തിലുള്ള ച്ചെട്ടിക്ക്ളും മരങ്ങളും പൂക്കളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുത്

ഒഡീഷയുടെ തീരമേഖലകളിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴക്ക് സാധ്യതയുണ്ട്

കടലിൽ മീൻപിടിക്കാൻ പോയവരോട് മടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്

ഒമാനിലെ മസ്കറ്റിൽ ഇന്നലെ രാത്രിയായിരുന്നു മൽസരം

വിദ്യാർത്ഥികളുടെ ടിക്കറ്റിന് ക്ഷാമം നേരിടുന്നത് കണക്കിലെടുത്താണ് തീരുമാനം അപ്പർ ടിയറിലെ ടിക്കറ്റുകളാണ് വിദ്യാർത്ഥികൾക്കായി മാറ്റിവച്ചിരിക്കുന്നത്